ഭേദഗതി നിയമം കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ന് തുടക്കം

സമാധാന പദ്ധതി പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ്

ഇന്ന് ഹാമിൽറ്റണിൽ പരമ്പര സ്വന്തമാക്കാൻ ഇന്തൃ

ഇന്നലെ ന്യൂഡൽഹിയിൽ എൻ

വിശദാംശങ്ങളുമായി ഗോപകുമാർ

സർജിക്കൽ സ്ട്രൈക്കിലൂടെയും വ്യോമുദ്ര്യമ്ണങ്ങളിലൂടെയും തീവ്രവാദ പ്രവർത്തനങ്ങളെ രാജ്യം ശൃക്തമായി നേരിടുന്നതായും ശ്രീ

ജമ്മുകാശ്മീർ മാത്രമല്ല രാജ്യം മുഴുവൻ സാമാധാനത്തിന്റെ പുതിയ പ്രഭാതം ആസ്വദിക്കുകയാണെന്നും ശ്രീ

വിഭാഗീയതക്കെതിരെ രാജ്യം അതിശക്തമായി മുന്നേറുകയാണെന്നും ഇതിൽ സമീപഭാവിയിൽ തന്നെ വിജയം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു

സ്വയം പര്യാപ്തവും ഐശ്വര്യപൂർണവും സുരക്ഷതവുമായ ഇന്ത്യ കെട്ടിപടുക്കാൻ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വെങ്കയ്യനായിഡു രാജ്യത്തെ യുവാക്കളോട് ആഹ്വാനം ചെയ്തു

വിദ്യാർത്ഥികൾ അക്രമത്തിനും വിധംസകപ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാനമാണ് രാജ്യവികസനത്തിന് വേണ്ടതെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടികാട്ടി രാജ്യത്തിന്റെ ഉയർന്ന പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കാൻ എല്ലാവരും യ്ത്ത്നിക്കണമെന്ന് ശ്രീ നായിഡു പറഞ്ഞു

ശ്രീലങ്കയിലും ജർമ്മനിയിലും ഓരോ ആൾക്ക് വീതം വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് തായ്ലന്റിൽ ആറു പേർക്കു കൂടി പുതുതായി രോഗബാധ റിപ്പോർട്ട് ചെയ്തു

എന്നാൽ വൈറസ് ബാധിച്ചതായി സംശയിക്കുന്നവർ സ്വയം വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

പുനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയ്ക്കു പുറമെ ആലപ്പുഴ ബംഗലുരൂ ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിലും പരിശോധനാ ലാബുകൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്

കൊറോണ് രോഗ ബാധ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും സ്മിഗ്രതികൾ നേരിടാൻ സജ്ജമാകാനുള്ള സംവിധാനമാണ് ആരോഗ്യ ്വകുപ്പ് ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചൈനയിലെ വുഹാനിൽ നിന്നും വന്നവർ സ്വമേധയാ നിരീക്ഷണത്തിന് തയ്യാറാകണം കേരളം സന്ദർശിച്ച കേന്ദ്ര സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയതായി ശ്രീമതി

ഇപ്പോൾ തന്നെ നൂറിലധികം പേരുടെ ജീവൻ അപഹരിച്ച വൈറസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തങ്ങൾ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ തയ്യാറാണെന്നും അമേരിക്ക ഉവളിപ്പെടുത്തി

കൂള്തീനോടകം മൂന്നുതവണ തങ്ങൾ ചൈനയോട് സഹായ അഭ്യർത്ഥ്ന നടത്തിയതായും എന്നാൽ അനുകൂലമായ പ്രതികരണമല്ല ഉണ്ടായ്തെന്നും അമേരിക്കൻ ആരോഗ്യ സെക്രട്ടറി അലക്സ് അസർ വ്യെളിപ്പെടുത്തി

നന്ദിപ്രമേയ ചർച്ചയ്ക്കും ബജറ്റിൻമേലുള്ള പൊതുചർച്ചയ്ക്കും മൂന്നു ദിവസം വീതവും നിയമനിർമ്മാണത്തിന് ഒരു ദിവസവുമാണ് നീക്കിവച്ചിട്ടുള്ളത്

വിജിലൻസ് കേസുകളും സ്വന്തമായി തുടക്കമിട്ട കേസുകളും ബാങ്കുകൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു

ഫെബ്രുവരി ഒന്നിനാണ് ബി ഡിവിഷൻ ഫൈനൽ കേരള ടീം ഉൾപ്പെടുന്ന എ ഡിവിഷൻ മത്സരങ്ങൾ നാളെ ആരംഭിക്കും

എസ് പ്രസിഡൻറ് ഡോണൾഡ് ട്രംപ് ഇസ്രയേലിനെ ജൂത രാഷ്ട്രമായി അംഗീകരിക്കണം തലസ്ഥാനമായി ജറുസലേം തുടരുമെന്നും ട്രംപ് പറഞ്ഞു

ആരും അവരുടെ സ്വത്തുട്ട് നാട്ടിൽ നിന്ന് പുറത്താകില്ല പലസ്തീനു കിഴക്കൻ ജരു്സ്ലേമിൽ തലസ്ഥാനം ഉണ്ടാകുമെന്നും അവിടെ സ്ഥാനപത്യി കൃട്ടരൃാലയം ആരംഭിക്കാൻ അമേരിക്ക തയ്യാറാണെന്നും ട്രംപ്പ് കൂട്ടിച്ചേർത്തു